തോമസ് ഐസക്

ഷൊർണൂർ എം

എ പി കെ ശശി പീഡിപ്പിക്കാൻ ശ്രമി ച്ചതായി ആരോപിച്ച് ഡി

ഐ വനിതാ നേതാവ് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി

തോമസ് ഐസക് തിരുവനന്തപുരത്ത് അറി കേന്ദ്രസഹായം ജീവനക്കാരുടെയും പൊതുജനങ്ങളു യിച്ചു സംഭാവന വിദേശ സഹായം എന്നിവ വഴി മൂന്ന് രീതി ടെയും യിൽ തുക സമാഹരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്

ശമ്പളം നൽകാനാവാത്തവർക്ക് ലീവ് സറണ്ടർ വഴിയും സംഭാവന നൽകാൻ കഴിയുമെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ ഇതു നൽകാൻ ആരെയും നിർബന്ധിക്കില്ലെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിദേശത്തുനിന്ന് ധന സഹായം സമാഹരിക്കുന്ന ദൌത്യം അടുത്തമാസം നടത്തും സംസ്ഥാനത്ത് നൂറിൽ താഴെ പേർക്ക് മാത്രമാണ് എലിപ്പനി സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളികയ്ക്ക് ക്ഷാമമില്ലെന്നും ആവശ്യമായ ഗുളികകൾ ആരോഗ്യവകുപ്പിന്റെ കയ്യിലുണ്ടെന്നും അവർ ഒരു വാർത്താചാനലിനോട് പറഞ്ഞു ഈ ഗുളിക കഴിച്ചാലും എലിപ്പനി വരാൻ ഇടയുണ്ടെന്നും ഇത്തരം ഘട്ടങ്ങളിൽ ചികിത്സ തേടി മര ണമൊഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു വിതരണം ചെയ്ത ഗുളി കകൾ പലരും കഴിച്ചിട്ടില്ലെന്നും ഇത് കഴിക്കാതിരുന്നവരാണ് മരി ച്ചവരിൽ ഏറെയെന്നും മന്ത്രി വ്യക്തമാക്കി ചിലയിടങ്ങളിൽ ക്യാമ്പ് നടത്തി ഗുളിക വിതരണം ചെയ്യുന്നുണ്ട് മലിനജലത്തിൽ കഴിയു ന്നവർ പ്രതിരോധ നടപടി സ്വീകരിക്കണമെന്നും ശൈലജ ആവ ശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ അഞ്ചുപേർക്ക് എലിപ്പനി ബാധിച്ചതായി സംശയിക്കുന്നു ഇന്നലെ മരിച്ച ആറ്റടപ്പ സ്വദേശിയ്ക്ക് എലിപ്പനി ബാധിച്ചതായി ആരോഗൃവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല ഇരിവേരി ചി റക്കൽ ചിറ്റാരിപ്പറമ്പ് കൊട്ടിയൂർ എളയാവൂർ എന്നിവിടങ്ങളിലാ ണ് എലിപ്പനി ബാധ സംശയിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തി രിക്കുന്നത് കേളകം പന്ന്യന്നൂർ പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി യെന്ന് സംശയിക്കുന്ന രണ്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേതുടർന്ന് ജില്ലയിൽ ആ രോ ഗ്യ വ കുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും സന്നദ്ധ പ്രവർത്തകരും വീട് വൃത്തിയാക്കാൻ പോയവരും നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കൽ എലിപ്പനിക്ക് നൽകുന്ന പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് ഡി

ഒ അ റിയിച്ചു എലിപ്പനി മരണങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് കേന്ദ്രസംഘത്തെ നിയോഗിക്കണ മെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു പാർലമെന്റ് ആരോഗ്യ സമിതി അംഗമെന്ന നിലയിൽ കേന്ദ്രആരോഗ്യമന്ത്രി ജെ പി നദ്ദക്കയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് പ്രളയത്തെ തുടർന്ന് സംസ്ഥാന പുനർനിർമ്മാണത്തിന് കെ

ജി യെ കൺസൾട്ടൻസിയായി നിയോഗിക്കാനെടുത്ത തീരുമാനം ഗവൺമെന്റ് പുനപരിശോധിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു

ജിയുടെ വിശ്വാസ്യതയും പശ്ചാത്തലവും പരിശോധിക്കണ മെന്നും ഇവർ പല രാഷ്ട്രങ്ങളിലും ക്രമക്കേട് നടത്തിയി ട്ടുണ്ടെന്നും അദ്ദേഹം ഒരു സ്വകാര്യ വാർത്താചനലിനോട് പറഞ്ഞു ദക്ഷിണാഫ്രിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്രമക്കേട് നടത്തിയതായി പരാതിയുണ്ട് വിവാദമുണ്ടാക്കാനല്ല സദുദ്ദേശ്യ ത്തോടെയാണ് ഇക്കാര്യം പറയുന്നതെന്നും സുധീരൻ വ്യക്തമാ ക്കി സംസ്ഥാനത്ത് പ്രളയത്തിൽ തകർന്ന വീടുകൾ അറ്റകുറ്റപ്പ ണിനടക്കുന്നതിനും നവീകരിക്കുന്നതിനും എസ്

ഐയുടെ പ്രത്യേക വായ്പ അനുവദിക്കും

വായ്പയ്ക്ക് പ്രൊസസിംഗ് ഫീസ് ഈടാക്കില്ലെന്ന് എസ്

പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം വേണ്ടെന്ന് വെയ്ക്കാൻ തീരു മാനിച്ചിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ

ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാ ണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി തിയ്യതി മാറ്റി ആർഭാടം കുറഞ്ഞ രീതിയിൽ കലോത്സവം നടത്തു മെന്ന് അദ്ദേഹം പറഞ്ഞു കലോത്സവത്തിന്റെ സമയക്രമങ്ങളിൽ മാറ്റം വരുത്തിയേക്കാമെന്നും വെള്ളിയാഴ്ച അധ്യാപക സംഘടനകൾ ഉൾപ്പെടുന്ന ക്യു

പി മോണിറ്ററിങ് യോഗം ചേർന്ന് ഇക്കാര്യ ങ്ങൾ ചർച്ചചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സമിതിയുടെ ശുപാർശകൾ ഗവൺമെന്റിന് സമർപ്പിച്ച് അന്തിമ തീരുമാനമെടു ക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ഡിസംബർ അഞ്ചു മുതൽ ഒമ്പതു വരെ ആലപ്പുഴയിലാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്താൻ തീരുമാ നിച്ചിരിക്കുന്നത് കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഡാമുകൾ തുറന്നതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുൻ ജലസേ ചനമന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൻ കെ പ്രേമ ചന്ദ്രൻ എം പി യും ആവശ്യപ്പെട്ടു ഡാം മാനേജ്മെന്റും ദുരന്ത നിവാരണ അതോറിറ്റിയും തീർത്തും പരാജയമായിരുന്നുവെന്ന് അവർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപി ച്ചു കനത്ത മഴയെക്കുറിച്ച് മുൻകൂർ അറിയിപ്പ് കിട്ടിയിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല സാങ്കേതിക പിഴവുകൾ പറഞ്ഞ് ഗവൺമെന്റിന് രക്ഷപ്പെടാനാവില്ലെന്നും അവർ വ്യക്തമാക്കി ദുര ന്തത്തെ മഹാദുരന്തമാക്കിമാറ്റിയത് സംസ്ഥാന ഗവൺമെന്റാണെന്ന് തിരുവഞ്ചൂരും പ്രേമചന്ദ്രനും കുറ്റപ്പെടുത്തി

പി ജയരാജൻ കെ കെ ശൈലജ എന്നിവ രുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഡോക്ടർമാരും ഒരു മാ സ ത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സമ്മതപത്രം നൽകി ജില്ലാ ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസിലെയും മേഖ ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെയും ജീവനക്കാരും ഒരു മാ സത്തെ ശമ്പളം ദുരിതാശാസ നിധിയിലേക്ക് നൽകും ജില്ലയിലെ ഒമ്പത് ഗ്രാമ പഞ്ചായത്തുകളിലെ ഭരണസമിതി അംഗങ്ങളും ജീവ നക്കാരും ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യാൻ മുന്നോട്ട് വ ന്നിട്ടുണ്ട് ഷൊർണൂരിലെ സി

എം എം

ശശി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് ഡി

ഐ നേതാവായ യുവതി പാർട്ടി കേന്ദ്രനേതൃത്വത്തിന് പരാതി നൽകി

ഐ പാലക്കാട് ജില്ലാകമ്മറ്റി അംഗമാ യ യുവതി യാണ് മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ വെച്ച് എം

എ തനി യ്ക്കെതിരെ അതിക്രമത്തിന് ശ്രമിച്ചെന്ന് പരാതി നൽകിയത് ഒരു കോടി രൂപയും ഡി

ഐ യിൽ ഉന്നത പദവിയും ശശി വാഗ്ദാനം ചെയ്തതായി പരാതിയിൽ പറയുന്നു

എ ഫോണിലൂടെ അശ്ലീല സംഭാഷണം നടത്തിയെന്നും യുവതി കുറ്റപ്പെടുത്തി ശശിയ്ക്കെതിരെ പരാതി ലഭിച്ചതായി സി

എം ജന റൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇതേപറ്റി അന്വേഷിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നിർദേശം നൽകിയിട്ടുണ്ടെന്നും യെച്ചൂരി അറിയിച്ചു തനിക്കെതിരെ യുവതി പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി യതിനെ കുറിച്ച് അറിയില്ലെന്ന് പി

ശശി എം

എ പ്രതിക രിച്ചു ഇക്കാര്യത്തിൽ സി

എം തന്നോട് ഒന്നും പറഞ്ഞിട്ടി ല്ലെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ടാ യിരിക്കാം ഇത്തരം നീക്കമെന്നും എം

പാർട്ടി അന്വേഷണം വന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അതിനെ നേരി ടുമെന്നും പി കെ ശശി വ്യക്തമാക്കി പാർട്ടി എം

ഐ നേതാ വായ യുവതി പരാതി നൽകിയ സാഹചര്യത്തിൽ ഡി

ഐ അഖിലേന്ത്യ പ്രസിഡണ്ട് മുഹമ്മദ് റിയാസും സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് എം

എൻ ഷംസീർ എം

എയും സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവ നന്തപുരത്ത് എ

ജി സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പാർട്ടി കേന്ദ്രകമ്മറ്റി അംഗം കൂടിയായ മന്ത്രി എ കെ ബാലനും പങ്കെടു ത്തു

കെ ശശി എം

എ ക്കെതിരെ നിയമ നടപടി സ്വീകരി ക്കണമെന്ന് വി മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് സമാന്തര ഭരണത്തിനാണ് സി

എം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി പാർട്ടിയിലെ പ്രമുഖർ ക്രിമി നലുകളെ സംരക്ഷിക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്നും ഇടിഞ്ഞു

ചരിത്രത്തിൽ ആദ്യ മായാണ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇത്രയും ഇടിയുന്ന ത്

പെട്രോൾ ഡീസൽ വില ഇന്നും വർധിച്ചു

പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെന്നാവശൃപ്പെട്ട് ഇട തുപാർട്ടികൾ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ച് നടത്തി

എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് മാർച്ച് ഉദ്ഘാ ടനം ചെയ്തു ഹൈദരാബാദ് ഇരട്ട സ്ഫോടനക്കേസിൽ രണ്ട് പ്രതികൾ കുറ്റ ക്കാരാണെന്ന് പ്രത്യേക എൻ

എ കോടതി കണ്ടെത്തി രണ്ട് പ്രതികളെ കോടതി വെറുതെ വിട്ടു മുഹമ്മദ് അക്ബർ ഇസ്മ യിൽ ചൌധരി അനീക് ഷഫീഖ് സയീദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇവരുടെ ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാ പിക്കും

ഇന്ന് നിർവാഹക സമിതിയും നാളെയും മറ്റന്നാളും സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്

ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആക്കണമെന്ന് ശുപാർശ ചെയ്ത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര കേന്ദ്രഗവൺമെന്റിന് കത്തുനൽകി ജസ്റ്റിസ് ദീപക് മിശ്ര അടുത്തമാസം രണ്ടിന് വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് സീനി യോറിറ്റിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോ യിയെ നിർദേശിച്ച് കത്തുനൽകിയത് അടുത്ത ചീഫ് ജസ്റ്റിസിന്റെ പേര് നിർദേശിക്കാൻ കഴിഞ്ഞ മാസം നിയമ മന്ത്രാലയം ദീപക് മിശ്രയോട് ആവശ്യപ്പെട്ടിരുന്നു ശുപാർശ രാഷ്ട്രപതി അംഗീക രിച്ചാൽ രഞ്ജൻ ഗൊഗോയി അടുത്തമാസം മൂന്നിന് ചീഫ് ജസ്റ്റി സായി ചുമതലയേൽക്കും കണ്ണൂർ പഴയങ്ങാടിയിലെ റെയിൽവെ മേൽപ്പാലം ഗതാഗത ത്തിന് തുറന്ന് കൊടുത്തു രാവിലെ ഒമ്പതോടെയാണ് പാലം തുറന്നത് പാലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അടുത്തമാസം മുഖ്യമന്ത്രി നിർവഹിക്കും വകുപ്പുകളുടെ ചുമതല കൈമാറാതെ ചികിത്സയ്ക്കായി മുഖ്യ മന്ത്രി വിദേശത്തേക്ക് പോയത് ചട്ടവിരുദ്ധമാണെന്ന് കെ സി ജോസഫ് എം

കേരളത്തിൽ ഭരണം മുഖ്യമന്ത്രിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും മന്ത്രിമാരിൽ വിശ്വാസമില്ലാത്തതിനാലാണ് വകുപ്പുകളുടെ ചുമ തല മറ്റു ള്ള വരെ ഏൽപ്പി ക്കാ തി രു ന്ന തെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഉരുൾപൊ ട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ മേഖലകളിലെ പുനരധിവാസം കരു തൽ നടപടികൾ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ പരിപാടിയിൽ ഉൾപ്പെടുത്തും അടിയന്തര വായ്പകൾ മുദ്ര വായ്പ ഇതര കേന്ദ്രപദ്ധതികൾ എന്നിവയെ പറ്റി വിദഗ്ദ്ധർ ക്ലാസുകളെടുക്കും ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കന്യാ സ്ത്രീയുടെ പരാതിയിൽ അന്വേഷണ പുരോഗതി കൊച്ചിയിൽ ചേർന്ന പൊലീസ് ഉന്നതതലയോഗം വിലയിരുത്തി എറണാകുളം റേഞ്ച് ഐ